മൂന്നാമത് ദൈമാസ പണനയം പ്രഖ്യാപിച്ചു

ലോക്സഭാസ്പീക്കർഓം ബിർല ഡൽഹിമുഖ്യമന്ത്രി അരവിന്ദ്കെജ്രിവാൾ ബി ജെ പി ദേശീയവർക്കിംങ് പ്രസിഡന്റ്ജെ പി നദ്ദ ബി എസ് പി നേതാവ്മായാവതി ബി ജെ പി എം പി ഹേമമാലിനി കേരളമുൻമുഖ്യമന്ത്രി ഉമ്മൻചാ ി ടിഎംസിഎം പി ഡെറിക്ഒബ്രിയൻ നോബേൽജേതാവ ്കൈലാഷ്സത്യാർത്ഥി യോഗഗുരുരാംദേവ്എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കൾസുഷമയുടെവസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു സുഷമാസ്വരാജിന്റെ ഭൌതികശരീരംപൊതുജനങ്ങൾക്കുഅന്തിമോപചാരം അർപ്പിക്കാൻ ബി ജെ പി ആസ്ഥാനത്തു കൊ ു പോകും മൂന്നുമണിക്കുശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സുംസ്കൂാരചടങ്ങുകൾ

സുഷമ സ്വരാജിന്റെ വേർപാട് ബി ജെപി ക്ക് മാത്രമല്ല രാജ്യത്തെ രാഷ്ട്രീയ രംഗത്തിനാകെ തീരാ നഷ്ടമാണെന്ന് ശ്രീ

പാർട്ടി ഭേദമന്യേ എല്ലാവരും ആദരിച്ചിരുന്ന നേതാവായിരുന്നു സുഷമ സ്വരാജെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അനുസ്മരിച്ചു ശ്രദ്ധേയയായ ഒരു നേതാവിനെയാണ് രാഷ്ട്രത്തിന് നഷ്ടമായതെന്ന് ബി

വനിതാ നേതാക്കൾക്ക് സുഷമ മാതൃകയായിരുന്നുവെന്നും നല്ലൊരു വ്യക്തിയായിരുന്നു അവരെന്നും ശ്രീ

എ അധ്യക്ഷ സോണിയാഗാന്ധിയും സുഷമ സ്വരാജിന്റെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു

ബംഗ്ലാദേശിന് ഒരു നല്ല സുഹൃത്തിനെയാണ് നഷ്ടമായിരിക്കുന്നതെന്ന് അവർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇൻഡ്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധം പുതിയ തലത്തിലേക്ക് എത്തിക്കുവാൻ സുഷമ സ്വരാജ് നൽകിയ സംഭാവനകൾ ബംഗ്ലാദേശ് എന്നും ഓർമ്മിക്കുമെന്നും ശ്രീമതി ഹസീന പറഞ്ഞു

രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിൽ ഇത് സുപ്രധാന മുഹൂർത്തമാണെന്ന് പ്രധാനമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി സുവർണ വോയ്സ് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ ധീരതയേയും സംയമനത്തേയും അഭിനന്ദിച്ച ശ്രീ മോദി അവർക്കായി ഒരു പുതിയ പ്രഭാതവും നല്ല നാളെയും കാത്തിരിക്കുന്നുവെന്നും വൃക്തമാക്കി പുതിയ ബില്ലുകൾ ഏകീകരണത്തിനും ശാക്തീകരണത്തിനും വഴി തുറക്കുമെന്നും യുവാക്കളെ മുഖ്യധാരയിലേയ്ക്ക് കൊ ുവരുന്നതിനും പുതിയ അവസരങ്ങൾ അവർക്കായി തുറന്നിടുന്നതിനും ഇതിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യത്ത് ജനാധിപത്യം നിലനിർത്തുന്നതിന് സഹകരിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പ്രധാനമന്ത്രി അനുമോദിച്ചു ഇരു സഭകളിലും വിഷയം അവതരിപ്പിച്ച ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു സ്പീക്കർ ഓം ബിർള എന്നിവരെയും പ്രധാനമന്ത്രി അനുമോദിച്ചു ജമ്മു കശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ സുരക്ഷയ്ക്ക് വേ പ്രവർത്തിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായോടും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു

പഞ്ചായത്ത് നിയ്മസഭ തിരഞ്ഞെടുപ്പുകളിലെ അഭയാർത്ഥികൾക്ക് വോട്ട് അവകാശം ലഭിച്ചിരുന്നില്ല മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം തങ്ങളുടെ പോരാട്ടം വിജയം ക തായി പടിഞ്ഞാറൻ പാകിസ്ഥാനി അഭയാർത്ഥി പ്രവർത്തക സമിതി അധ്യക്ഷൻ ലബ്ബ റാം പറഞ്ഞു

ക്രമസമാധാനപാലനത്തിനായി കരസേനയുടെ ടൈഗർ ഡിവിഷനെയും താഴ്വരയിൽ നിയോഗിച്ചിട്ടു ്

മധ്യസ്ഥ ഇടപെടൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണിത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടന ബഞ്ചിന് മുമ്പാകെ ശ്രീ

സുപ്രീംകോടതി മുൻ ജഡ്ജി എഫ്

ഖലീഫുള്ളയുടെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ സമിതിയുടെ റിപ്പോർട്ട് ജസ്റ്റിസുമാരായ എസ്

ബോബ്ഡെ ഡി

ചന്ദ്രചൂഢ് അശോക് ഭൂഷൺ എസ്

എന്നാൽ ഏകദേശം നാല് മാസത്തെ പരിശ്രമത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥ സമിതിക്കായില്ല ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇതുസംബന്ധിച്ച പാർട്ടി നയം ചർച്ച ചെയ്യാനാണ്കോൺഗ്രസ്യോഗംചേർന്നത് മുതിർന്ന നേതാക്കളായസോണിയാഗാന്ധി രാഹുൽഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗ്ശ്രീ പിചിദംബരം ശ്രീഗുലാം നബി ആസാദ് ശ്രീ എ കെആന്റണി ശ്രീആനന്ദ് ശർമ്മ തുടങ്ങിയവർയോഗത്തിൽസംബന്ധിച്ചു

എസ്

സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് സുസ്ഥിര സാമ്പത്തിക സ്ഥായവും ഇന്ത്യ ഉറപ്പു നൽകി ജറുസലെമിലെ ഏജൻസി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഐക്യരാഷ്ട്ര സഭയുടെ ദുരിതാശ്വാസ സംഘടനയ്ക്ക് പാല്സ്തീനിലെ ഇന്ത്യൻ പ്രതിനിധി സുനിൽ കുമാർ സംഭാവന തുകയ്ക്കുള്ള ക്ചെക്ക് കൈമാറി